ലോക്ക് ഡൌണിനെ തുടർന്ന്രാജ്യത്ത് കോവിഡ് രോഗികളുടെ എണ്ണത്തില്ലെ ഇരട്ടിപ്പ് കുറയുകയാണെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രാല്യം

കേരളത്തിൽ റെഡ് സോണായി പ്രഖ്യാപിച്ച ജില്ലകളിൽ മെയ് മൂന്ന് വരെ ലോക്ഡൌൺ കർശനമായി തുടരും മുസ്തിം ലീഗ് എം എൽ എ

ഷാജിക്കെതിരേ വിജിലൻസ് എഫ്

ആർ രജിസ്റ്റർ ചെയ്തു

പെരിന്തൽമണ്ണ കീഴാറ്റൂർ സ്വദേശിയായ വീരാൻകുട്ടിയാണ് ഇന്ന് രാവിലെ മരിച്ചത് വിശദവിവരങ്ങളുമായി ആകാശവാണി മലപ്പുറം പ്രതിനിധി സുരേഷ് ബാബു

ശൈലജയും സ്ഥിരീകരിച്ചു

അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിലായി കോവിഡ് സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണം കുറയുകയാണ്

നിലവിൽ രണ്ടു പേർക്ക് മാത്രമാണ് കോവിഡ് രോഗമുള്ളത് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ

മഹാരാഷ്ട്രയില്ലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്

രാജ്യത്തെ ലോക്ക്ഡൌൺ സ്ഥിതി കേന്ദ്ര സിംസ്ഥാന സർക്കാരുകൾ ഇതുവരെ സ്വീകരിച്ച നടപടികൾ എണ്ണിപ്പ ്ന്യൂഡൽഹിയിൽ ഇന്ന് ചേർന്ന മന്ത്രിതല യോഗം വിലയിരുത്തി

രാജ്യത്തെ കോവിഡ് വ്യാപനത്തിന്റെ നിലവിലെ സ്ഥിതിയും പ്രതിരോധ നടപടികളും യോഗം അവലോകനം ചെയ്തു പ്രതിരോധ മരുന്നുകൾ ആശുപത്രി ഉപകരണങ്ങൾ എന്നിവയുടെ ലഭ്യത രോഗനിർണയം പൊതുവായ ക്ഷേമഠ എന്നിവയും യോഗം വിലയിരുത്തി സംസ്ഥാനങ്ങളിൽ കോവിഡ് രോഗികൾക്കുള്ള ആശുപത്രികൾക്കാവശ്യമായ വിഭവങ്ങൾ ഉറപ്പാക്കൽ ആരോഗ്യ സ്ഥാപനങ്ങൾക്കാവശ്യമായ വെന്റിലേറ്റർ പി

ഇ ഉൾപ്പെടെയുള്ള അവശ്യ വസ്തുക്കളുടെ വിതരണം തുടങ്ങിയവയും മന്ത്രിതല യോഗം ചർച്ച ചെയ്തു ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം രാജ്യത്ത് വൈറസ് ബാധ മൂലമുള്ള മരണനിരക്ക് മൂന്ന് ശതമാനമാണ്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

സ്ഥിരീകരിച്ചു

രോഗികളുടെ എണ്ണം ഇരട്ടിക്കാനായി മൂന്ന് ദിവസം എടുത്തിരുന്നത് ഇപ്പോൾ ആറ് ദിവസമായി കൂടിയിട്ടുണ്ട്

രോഗമുക്തി നേടുന്ന്പ്രിമുട്ട എണ്ണത്തിലും മരിക്കുന്നവരുടെ എണ്ണത്തിലെ കുറവിലും ഇന്ത്യ മറ്റ് പല രാജ്യങ്ങളെക്കാളും മുന്നിലാണ് ഈ അനുപാതം കൂടുതൽ മെച്ചപ്പെടുത്താൻ സർക്കാർ സജീവശ്രമം തുടരുകയാണെന്നും ആരോഗ്യമന്ത്രാലയം വ്യക്തമാക്കി

അഞ്ചു ലക്ഷത്തി എഴുപതിനായിരത്തിലധികം പേർ രോഗമുക്തി നേടി

ഗൾഫ് നാടുകകളിൽ കൊറ്റോൺ വ്യാപനത്തിന്റെ തോത് കൂടുന്നതായാണ് റിപ്പോർട്ട്

എ ഇ

ആദായനികുതി റീഫണ്ടിലൂടെയാണ് ഈ ഇളവ് നൽകുന്നത്

നിലവിലെ പ്രതിസന്ധിയിൽ തൊഴിലാളികളുടെ ശമ്പളം വെട്ടിക്കുറക്കുകയോ പിരിച്ചുവിടലുകളോ ഇല്ലാതെ ഇടത്തരം വൃവസായങ്ങളുടെ തുടർ പ്രവർത്തനത്തിന് ഈ ഇളവ് സഹായിക്കുമെന്ന് സി

പ്രസ്താവനയിൽ പറഞ്ഞു

കോവിഡ് കാലത്ത് എയർ കണ്ടീഷണറുകൾ ഉപയോഗിക്കാൻ പാടില്ലെന്ന പ്രചരണം തെറ്റെന്ന് കേന്ദ്ര സർക്കാർ വിൻഡോ എ

എന്നാൽ കേന്ദ്രീകൃത എയർ കണ്ടീഷണറുകളുടെ ഉപയോഗം ഒഴിവാക്കേണ്ടതാണെന്ന് സർക്കാർ അറിയിച്ചു

കാസർകോട് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം ജില്ലകളാണ് റെഡ് സോണിൽ വരുന്നത് സംസ്ഥാനത്തെ ജില്ലകളെ നാല് മേഖലകളാക്കി തിരിച്ച് ഇന്നലെ രാത്രിയാണ് പുതിയ മാർഗ്ഗരേഖ സർക്കാർ പുറത്തിറക്കിയത്

മറ്റ് സംഘടനകൾ നൽകുന്ന പാസ്സ് ഉപയോഗിച്ച് പുറത്തിറങ്ങിയാൽ നടപടി സ്വീകരിക്കുന്നതാണ്

മൂന്നാറിലെ സമ്പൂർണ്ണ ലോക്ഡൌണിനും തിങ്കളാഴ്ച്ച് മുതൽ ഇളവുണ്ടാകും കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി ആന്റണി മുനിയറ

നഴ്സിംഗ് അസിസ്റ്റന്റുമാർ നഴ്സിംഗ് ഹെൽപർമാർ എന്നിവരെയും യാത്രാനിയന്ത്രണങ്ങളിൽ നിന്ന് ഒഴിവാക്കും

ആദ്യഘട്ടത്തിൽ ഇവരെ എത്തിക്കാൻ ക്രമീകരണങ്ങൾ കൂട്ടത്ത്ണമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തോടും വിദേശ ്യമന്ത്രാലയത്തോടും അഭ്യർത്ഥിക്കും ജോലി നഷ്ടപ്പെടുകയോ പ്പ് വിസ കാലാവധി തീരുകയോ ചെയ്തവർ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ജയിൽ വിമുക്തരായവർ കോഴ്സ് പൂർത്തിയാക്കിം ്മടങ്ങുന്ന വിദ്യാർത്ഥികൾ എന്നിവരെ രണ്ടാംഘട്ടത്തിൽ പരിഗണ്ിക്കും മറ്റു യാത്രക്കാരെ മൂന്നാമത്തെ പരി ഗണനാ വിഭാഗമായി കണക്കാക്കുമെന്നും മുകൃമന്ത്രി പറഞ്ഞു ദൂരദർശൻ ഏറ്റവുമധികം കാഴ്ചക്കാരുള്ള ചാനലുകളിൽ ദൂരദർശൻ രാജ്യത്ത് ഒന്നാം സ്ഥാനത്തെത്തിയതായി ബ്രോഡ്കാസ്റ്റ് ഓഡിയൻസ് റിസർച്ച് കൌൺസിൽ റിപ്പോർട്ട് ദൂരദർശനിൽ പുനഃസംപ്രേക്ഷണം ചെയ്യുന്ന രാമായണവും മഹാഭാരതവും ടെലിവിഷനിൽ ഏറ്റവുമധികം പ്രേക്ഷകർ കാണുന്ന ടിവി സീരിയലുകളായും മാറി തുടർച്ചയായി രണ്ട് ആഴ്ച ഒരു ചാനൽ തന്നെ ഒന്നാം സ്ഥാനത്ത് തുടരുന്നത് അപൂർവമാണെന്നും റിപ്പോർട്ട് വ്യക്തമാക്കി

സുധാകരൻ ആലപ്പുഴ ജില്ലയിൽ നെല്ല് സംഭരണം കാര്യക്ഷമമായി നടക്കുന്നതമാ മന്ത്രി ജി

ഷാജിക്കെതിരേ വിജിലൻസ് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തു

കഴിഞ്ഞൂ ദ്വീപ്പ്സമാണ് ഷാജിക്കെതിരേ വിജിലൻസ് കേസെടുത്ത് അന്ന്യെഷ്ണം നടത്താൻ സർക്കാർ അനുമതി നൽകിയത്